ശബരിമല തീർത്ഥാടന അട്ടിമറിശ്രമം അതിജീവിക്കാൻ കഴി ഞ്ഞതായി ദേവസ്വം ബോർഡ് പ്രസിഡണ്ട് എ ത്മകുമാർ

ും അയ്യപ്പജ്യോതിയെ എതിർക്കേണ്ടതില്ലെന്ന് സി

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ

ലോക് താന്ത്രിക് ജനതാദൾ കേരള കോൺഗ്രസ് ബി ഐ

എൽ ജനാധിപത്യകേരള കോൺഗ്രസ് എന്നീ പാർട്ടി കളെ മുന്നണിയിൽ ഉൾപ്പെടുത്താൻ ഇന്ന് ചേർന്ന മുന്നണി സംസ്ഥാന സമിതിയോഗമാണ് തീരുമാനിച്ചത് കേരളീയ സമൂ ഹത്തെ വർഗീയ വൽക്കരിക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ അതി നെതിരെ മതനിരപേക്ഷ ശക്തികളുടെ യോജിപ്പ് അത്യാവശ്യമാ ണെന്ന് തീരുമാനം വിശദീകരിച്ച് എൽ

എഫ് കൺവീനർ എ വിജയരാഘവൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ശബരിമലയിൽ തീർത്ഥാടനം അട്ടിമറിക്കാൻ ശ്രമമുണ്ടായെ ങ്കിലും അത് അതിജീവിക്കാൻ മണ്ഡലകാലത്ത് കഴിഞ്ഞതായി ദേവസ്വംബോർഡ് പ്രസിഡണ്ട് എ പത്മകുമാർ വാർത്താസമ്മേള നത്തിൽ പറഞ്ഞു

മകരവി ളക്ക് കാലത്തെ തീർത്ഥാടന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ മുഖ്യ മന്ത്രിയുമായും വിവിധ വകുപ്പ് മന്ത്രിമാരുമായും ചർച്ചനടത്തി തീരു മാനങ്ങൾ കൈക്കൊണ്ടതായും പത്മകുമാർ പറഞ്ഞു മണ്ഡലപൂജയ്ക്ക് അയ്യപ്പവിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്കഅങ്കി അൽപ്പസമയത്തിനകം ഘോഷയാത്രയായി പമ്പയിൽ എത്തി ച്ചേരും ഇന്ന് രാവിലെ പെരിനാട് ക്ഷേത്രത്തിൽ നിന്നാണ് നാലാം ദിവസത്തെ പ്രയാണം ആരംഭിച്ചത് ഉച്ചയോടെ പമ്പയിലെത്തുന്ന തങ്കഅങ്കി ഘോഷയാത്രാ സംഘത്തെ ദേവസ്വം ബോർഡ് ഭാര വാഹികളും അയ്യപ്പസേവാസംഘവും സ്വീകരിച്ച് പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് ആനയിക്കും മൂന്നുമണിവരെ ഭക്തജനദർശന ത്തിനായി തങ്കഅങ്കി ക്ഷേത്രത്തിൽവെയ്ക്കും വൈകിട്ട് ദീപാരാധന സമയത്തോടെ ഘോഷയാത്ര സന്നി ധാനത്തെത്തും തുടർന്ന് തങ്കഅങ്കി ചാർത്തിയ ദീപാരാധന നട ക്കും ഘോഷയാത്ര കടന്നുപോകുന്ന വഴികളിലെല്ലാം കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഒരുമണി മുതൽ തീർത്ഥാട കരെ പമ്പയിൽ നിന്ന് മലകയറാൻ അനുവദിക്കില്ല സന്നിധാ നത്തും പരിസരങ്ങളിലും ദ്രുതകർമ്മസേനയെ വിന്യസിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണമെ ന്നാവശ്യപ്പെട്ട് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് സംസ്ഥാനത്ത് അയ്യപ്പജ്യോതി തെളിയിക്കും

ഹൊസങ്കടി ധർമ്മശാസ്താക്ഷേത്രത്തിൽ കൊണ്ടെയൂർ ആശ്രമാ ധിപതി സ്വാമി യോഗാനന്ദസരസ്വതി ദീപം തെളിയിക്കും തുടർന്ന് കന്യാകുമാരി ത്രിവേണി സംഗമം വരെയും ജ്യോതി തെളിയി ക്കുന്നുണ്ട് തമിഴ്നാട്ടിലേക്ക് കടക്കുന്ന കേന്ദ്രത്തിൽ ദീപം കത്തിച്ച് സുരേഷ്ഗോപി പരിപാടിയ്ക്ക് നേതൃത്വം നൽകും അങ്കമാലി വരെ ദേശീയപാതയുടെ ഇടതുവശത്തും അവിടെ നിന്ന് എം സി റോഡിന്റെ ഇടതുവശത്തുമായിരിക്കും അയ്യപ്പ ജ്യോതി തെളിയിക്കുന്നത്

കൊളത്തൂർ അദ്വൈതാശ്രമത്തിലെ സ്വാമി ചിദാനന്ദപുരിയുടെ അയ്യപ്പജ്യോതി സന്ദേശം സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കും പത്തുലക്ഷത്തോളം പേർ ജ്യോതിയിൽ പങ്കെടുക്കുമെന്ന് കർമ്മസമിതി അറിയിച്ചു

അയ്യപ്പജ്യോതിയെ ബി ജെ പി പിന്തുണയ്ക്കും എൻ എസ് എസും ജ്യോതിക്ക് പരോക്ഷപിന്തു ണ നൽകിയിട്ടുണ്ട്

സി മുൻ ചെയർമാൻ കെ എസ് രാധാ കൃഷ്ണൻ മുൻ ഡി ജി

ശബ രി മല കർമ്മ സ മി തി യു ടെ അയ്യ പ്പ ജ്യോതിയെ എതിർക്കേണ്ടതില്ലെന്ന് സി

കർമ്മസമിതിയുടെ ജനാധിപത്യപര മായ പ്രതിഷേധമായിരിക്കാം ജ്യോതി തെളിയിക്കലെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

ഏത് വിഷയത്തിലും മറ്റാരും പ്രതിക രിക്കരുതെന്ന നിലപാട് തനിക്കില്ലെന്നും കാനം വ്യക്തമാക്കി മണ്ഡലകാലത്ത് യുവതികൾ തൽക്കാലം ശബരിമലയിലേക്ക് എത്തരുതെന്ന ദേവസ്വം ബോർഡ് പ്രസിഡണ്ട് എ പത്മകുമാറിന്റെ നിലപാടിൽ അപാകതയില്ലെന്നും കാനം പറഞ്ഞു യുവതികളെ പ്രവേശിപ്പിക്കുന്നത് ഗവൺമെന്റിന്റെ അജണ്ടയല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ പറ്റാത്ത സാഹ ചര്യമുണ്ടെന്ന് ബോർഡും കോടതിയെ അറിയിച്ചിട്ടുണ്ട്

പ്രളയബാധിതരായ രണ്ടായിരത്തിലധികം സ്ത്രീകൾ വിവിധ ദുരിതാശാസ ക്യാമ്പുകളിൽ കഴിയുമ്പോൾ വനിതാമതിലല്ല വേണ്ട തെന്ന് മുൻ ഡി ജി പി ടി പി സെൻകുമാർ തിരുവനന്തപുരത്ത് പറ ഞ്ഞു

പ്രളയ ദുരിതത്തിൽപ്പെട്ട ഒരുപാടുപേർ ഇപ്പോഴും പുനരധി വസിപ്പിക്കപ്പെട്ടിട്ടില്ലെന്നും സെൻകുമാർ പറഞ്ഞു

ആരുടെ നിർദേശത്തിന്റെ അടി സ്ഥാനത്തിലാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഗവൺമെന്റ് വ്യക്ത മാക്കണമെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേ ളനത്തിൽ ആവശ്യപ്പെട്ടു വനിതാമതിലിന് വേണ്ടി നടത്തുന്ന പണപ്പിരിവും ഭീഷണിയും അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു

ഗവൺമെന്റ് ഓഫീസുകളിൽ ഇപ്പോൾ മതിൽ നിർമ്മാണം മാത്രമാണ് നടക്കു ന്നതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി പൊതുമേഖലാബാങ്കുകളുടെ ലയനത്തിൽ പ്രതിഷേധിച്ച് ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്ക് തുടങ്ങി

വിജയബാങ്കിനെയും ദേനബാങ്കിനെയും ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിപ്പിക്കുന്നതിനെതിരായാണ് ബാങ്ക് യൂണിയൻ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പണിമുടക്ക്

ടി എമ്മുകളുടെ പ്രവർത്തനത്തെ ഇത് ബാധിക്കില്ലെന്ന് എസ് ബിഐ അറിയിച്ചു അയോധ്യക്കേസ് വേഗത്തിൽ തീർപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു ശബരിമല ക്കേസ് വേഗം തീർപ്പാക്കിയ സുപ്രീംകോടതിയ്ക്ക് ഇക്കാര്യത്തിൽ എന്തിനാണ് ഇത്ര മടിയെന്നും അദ്ദേഹം ചോദിച്ചു

കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ കേന്ദ്രനിയമ മന്ത്രി ഇട പെടുന്നത് ഭരണഘടനാവിരുദ്ധമാണെന്ന് മുസ്ലിം വൃക്തിനിയമ ബോർഡും നിയമ മന്ത്രി തന്നെ നിയമം ലംഘിക്കുന്നത് ശരിയ ല്ലെന്ന് ഇടത് സംഘടനകളും വൃക്തമാക്കി മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ മികച്ച നിലയിലേക്ക്

ഹനുമ വിഹാരിയുടെയും മയാങ്ക് അഗർവാളിന്റെയും വിക്കറ്റുകളാണ് നഷ്ടമായത് വിരാട് കോഹ്ലിയും ചേതേശ്വർ പൂജാരയുമാണ് ക്രീസിൽ ഒളിമ്പ്യൻ മാനുവൽ ഫ്രെഡറികിന് ഗവൺമെന്റ് അനുവദിച്ച ഭൂമിയിൽ വീടിന്റെ നിർമ്മാണം പൂർത്തിയായി

ഊരാളുങ്കൽ സൊസൈറ്റിയ്ക്കാണ് നിർമ്മാണച്ചുമതല മാനുവൽ ഫ്രെഡറിക് ഇപ്പോൾ ബംഗലൂരുവിലാണ് താമസം

മതിയായ യോഗ്യതയില്ലെന്ന കാരണ ത്താൽ ഹരികുമാറിനെ പുറത്താക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു വയനാട്ടിലെ കർഷകർക്ക് പ്രത്യേക കാർഷികപാക്കേജ് നട പ്പാക്കണമെന്ന് നിയമസഭാ എസ്റ്റിമേറ്റ്കമ്മറ്റി നിർദേശിച്ചു പ്രളയ ത്തിൽ തകർന്ന വനപ്രദേശങ്ങളിലെ അനധികൃത നിർമ്മാണങ്ങൾ തടയണമെന്നും ഭൂപ്രകൃതിയിലെ മാറ്റങ്ങൾ ദേശീയ ഭൌമശാസ്ത്ര കേന്ദ്രത്തെ നിയോഗിച്ച് പഠനവിധേയമാക്കണമെന്നും എസ് ശർമ്മ അധ്യക്ഷനായ സമിതി ആവശ്യപ്പെട്ടു കണ്ണൂർ ജില്ലയിലെ ആറളം ആദിവാസി പുനരധിവാസ മേഖ ലയിൽ അടിക്കടിയുണ്ടാകുന്ന കാട്ടാനകളുടെ ആക്രമണം തടയാൻ ആനമതിൽ നിർമ്മാണം കാര്യക്ഷമമാക്കണമെന്ന് ആദിവാസി ദളിത് മുന്നേറ്റ സമിതി പ്രസിഡണ്ട് ശ്രീരാമൻ കൊയ്യോൻ കണ്ണൂരിൽ ആവശ്യപ്പെട്ടു

ശബരിമലയിലേക്ക് കാൽനടയായി പോകുകയായിരുന്ന ഭക്തൻ ലോറി തട്ടി മരിച്ചു കാസർകോട് സ്വദേശി കൃഷ്ണപ്പ യാണ് മരിച്ചത് കണ്ണൂർ പയ്യന്നൂരിനടുത്ത് എടാട്ട് ഇന്ന് രാവിലെ യായിരുന്നു അപകടം

ഇവർക്കൊപ്പ മുണ്ടായിരുന്ന മകൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടു

മഞ്ചേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡിൽ പഴയമഠത്തെ ആൾത്താമസമില്ലാത്ത വീട്ടിൽവെച്ചാണ് എസ്

രാജ്യത്ത് ആദ്യമായി മിശ്രഭോജനം നടന്നയിടമാണ് ശബരിആശ്രമം കണ്ണൂർ കുഞ്ഞിമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടം ഇന്ന് തുടങ്ങും ഉച്ചയ്ക്ക് മുച്ചിലോട്ട് ഭഗവതി യുടെ തിരുമുടി നിവരും